ഉയരമുള്ള പ്രതിമ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു

നൽകിയ ബാങ്കുകളെ നിയന്ത്രിക്കാൻ നടപടി എടുക്കാത്തിൽ ധനമന്ത്രി അരുൺജെയ്റ്റ്ലി റിസർവ് ബാങ്കിനെ വിമർശിച്ചു

ചെയ്യാൻ ദക്ഷിണേന്തൃൻ സംസ്ഥാനങ്ങളുടെ യോഗം തിരുവന്തപുരത്ത്

ഗുജറാത്തിലെ നർമ്മദാ ജില്ലയിലുള്ള കെവാദിയ ഗ്രാമത്തിലാണ് പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത്

ഇന്ത്യാചരിത്രത്തിലെ അവിസ്മരിണീയമായ ദിനമാണിതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്തെ ശിഥിലീകരിക്കാനുള്ള ശ്രമങ്ങളെ ചെറുത്ത് ധീരതയുടെ പ്രതീകമായി പട്ടേൽ പ്രതിമ ലോകത്തിനു മുന്നിൽ ഉയർന്നു നിൽക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു രാഷ്ട്രം എന്ന നിലയിൽ ഇന്ത്യയുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്തവർക്കുള്ള മറുപടിയാണ്പട്ടേൽ പട്ടേലിന്റെ സ്മാരകം അവർക്ക് എക്കാലത്തെയും അടയാളമായി നിലകൊള്ളുമെന്ന് ശ്രീ

ഗുജറാത്ത് ഗവർണർ ഒ

കോഹ്ലി മുഖ്യമന്ത്രി വിജയ് രുപാനി ബി ജെ

ദേശീയ അധ്യക്ഷൻ അമിത് ഷാ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു

എല്ലാ സംസ്ഥാനങ്ങളിലും വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ നിരവധി പരിപാടികൾ സ്എലടിപ്പിച്ചു കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണി സർദാർ വല്ലഭായ് പട്ടേൽ ്ജന്മദിനം പ്രമാണിച്ച് ഡൽഹിയിൽ വിവിധ മന്ത്രാലയങ്ങൾ പൊതു മേഖലാ സ്ഥാപനങ്ങൾ സംഘടനകൾ എന്നിപ്യുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുകയാണ് രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുമെന്ന് ജനങ്ങൾ പ്രതിജ്ഞ എടുത്തു ഐക്യത്തിനു വേണ്ടിയുള്ള കൂട്ടയോട്ടത്തിൽ ജീവിതത്തിന്റെ നാനാതുറകളിൽപെട്ട ജനങ്ങൾ പങ്കെടുത്തു ന്യൂഡൽഹിയിലെ മേജർ ധ്യാൻ ചന്ദ് സ്റ്റേഡയത്തിൽ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് കൂട്ടയോട്ടം ഫ്ളാഗ് ഓഫ് ചെയ്തു

വെങ്കയ്യനായിഡു ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജാൽ കേന്ദ്രമന്ത്രി ഹർദ്ദീപ് പുരി എന്നിവർ പുഷ്പാഞ്ജലി നടത്തി ഐക്യത്തിന്റെയും അഖണ്ഡതയുടെയും പ്രതീകമായ വല്ലഭായ് പട്ടേലിനെ രാഷ്ട്രം എക്കാലവും സ്മരിക്കുമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞു ഇന്ത്യയുടെ ഏകീകരണം യാഥാർത്ഥ്യമാക്കുകയും രാഷ്ട്രത്തിന്റെ ഉന്നമനത്തിനായി അക്ഷീണം യത്നിക്കുകയും ചെയ്ത വല്ലഭായ് പട്ടേൽ ലോകോത്തര നേതാവാണെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു അഭിപ്രായപ്പെട്ടു ചലച്ചിത്ര പ്രദർശനം ചർച്ച സംവാദം സാംസ്കാരിക പരിപാടികൾ എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട് സായുധസേനയുടെ വിവിധ ഘടകങ്ങൾ പട്ടേൽ ജന്മദിനം ആഘോഷിച്ചു വിവിധ രാജ്യങ്ങളിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയങ്ങളിലും പട്ടേൽ ജന്മദിനം ആഘോഷിക്കുകയാണ്

സുഹൃദ് സംഘങ്ങളുമായി ചേർന്ന് ചർച്ചാ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് ന്യൂസ്ഡെസ്ക് ആകാശവാ്ണി

ഇന്ത്യയെ ഒന്നിലധികമായി വിഭജിക്കുന്നതിൽ നിന്ന് രക്ഷിക്കാൻ അദ്ദേഹം വളരെയേറെ പരിശ്രമിച്ചതായും ശ്രീ

പ്രമുഖ പത്രങ്ങളിൽ അദ്ദേഹം നൽകിയ ലേഖനങ്ങളിലാണ് ഇങ്ങനെ പറഞ്ഞത്

ഈ കാലയളവിൽ ബാങ്കുകൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ പ്രതിസന്ധി വർദ്ധിക്കാനിടയാക്കി അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന ഗവൺമെന്റുകൾ ബാങ്കുകളെ സമ്മർദ്ദത്തിലാക്കിയതായും ജെയ്റ്റ്ലീ കുറ്റപ്പെടുത്തി

ന്യൂഡൽഹിയിൽ ഇന്ദിരാഗാന്ധി അന്ത്യവിശ്രമം കൊള്ളുന്ന ശക്തിസ്ഥലിലായിരുന്നു പ്രധാന അനുസ്മരണ ചടങ്ങുകൾ കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽഗാന്ധി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് യു

എ അധ്യക്ഷ സോണിയാഗാന്ധി എന്നിവർ ഇന്ദിരാ സമാധിയിൽ ആദരാഞ്ജലി അർപ്പിച്ചു

സാമൂഹ്യ നീതി സഹ്മന്ത്രി കൃഷ്ണപാൽ ഗുജ്ജാർ രണ്ട് എം

ഇതു സംബന്ധിച്ച ഇടക്കാല റിപ്പോർട്ട് സമിതി നാളെ സുപ്രീംകോടതിയിൽ സമർപ്പിക്കും റിപ്പോർട്ട് വെള്ളിയാഴ്ച കോടതി പരിഗണിക്കും

ഉന്നത അധികാര സമിതി കഴിഞ്ഞൂ ആഴ്ച ശബരിമലയിൽ സന്ദർശനം നടത്തിയാണ് റിപ്പോർട്ട് ത്യാറാക്കിയത്

സൌകര്യങ്ങൾ ഇല്ലാത്തതിനാൽ തീർത്ഥാടകരെ പമ്പയിൽ തങ്ങാൻ അനുവദിക്കില്ല

ഇത് ഐക്യരാഷ്ട്ര സുരക്ഷാ കൌൺസിലിന്റെ നേതൃത്വത്തിലെടുത്ത ഭീകര വിരുദ്ധ പോരാട്ടങ്ങൾക്ക് വിപരീതമാണെന്നും രാജ്യത്തെ അപകടത്തിലാക്കുമെന്നും അമേരിക്ക വൃക്തമാക്കി പാക് നടപടി അതീവ ആശങ്കയുണ്ടെന്നും യു എസ് വക്താവ് അഭിപ്രായപ്പെട്ടു

അമേരിക്കയിലെ മുതിർന്ന വൃവസായ വാണിജ്യ പ്രമുഖർ ഇന്നലെ ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ചു ഇന്ത്യ നേതൃത്വ ഉച്ചകോടിയുടെ വിശദാംശങ്ങൾ നേതാക്കൾ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു കഴിഞ്ഞ നാലു വർഷമായി രാജ്യത്തെ സാമ്പത്തിക മേഖലയിൽ നടത്തിവരുന്ന പരിഷ്കരണ നടപടികൾ തികച്ചും ഗുണകരമാണെന്ന് നേതാക്കൾ പ്രധാനമന്ത്രിയോട് പറഞ്ഞു സാമ്പത്തിക ഇടപെടലുകൾ ഇരുരാജ്യങ്ങൾക്കും നേട്ടമുണ്ടായതായും പ്രധാനമന്ത്രി അറിയിച്ചു

വോട്ടെടുപ്പിന് സുരക്ഷ ഉറപ്പാക്കും

എൻ പൊതുസഭയിൽ ഉന്നയിച്ച പാകിസ്ഥാൻ നടപടിയെ ഇന്ത്യ വിമർശിച്ചു പാകിസ്ഥാൻ പ്രതിനിധി മലീഹ ലോധിയുടെ പരമാർശങ്ങൾക്ക് മറുപടിയായിട്ടാണ് യു എന്നിലെ ആദ്യ ഇന്ത്യൻ സ്ഥിരം സമിതി സെക്രട്ടറി പൌലോമി ത്രിപാഠി തിരിച്ചടിച്ചത്

അംഗത്വമെടുക്കൽ മറ്റ് ആധാർ പരിധിയിലെ സേവനങ്ങൾ എന്നിവ സങ്കീർണതയില്ലാതെ ജനങ്ങൾക്ക് നൽകാനാണ് ഇത്തരം കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത്